ഗുജറാത്ത് തീരത്തേക്ക് നീങ്ടുന്ന വായു ചുഴലിക്കാറ്റ് കെടുതി നേരിടാനുള്ള ് മുട്ന്നൊരുക്കങ്ങൾ കേന്ദ്രം വിലയിരുത്തി

വജ്രവ്യാപാരി നീരവ് മോദിക്ക് യു

ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു

ഗവൺമെന്റിന്റെ മികച്ച പ്രവർത്തനത്തിന് പദ്ധതികളും രൂപരേഖയും തയ്യാറാക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി എല്ലാ മന്ത്രിമാരേയും കാണുക

അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പദ്ധതികളെക്കുറിച്ച് വിശദമായി ആസൂത്രണം ചെയ്യാൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു

രാജീവ് ഗൌബയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിൽ ചേർന്ന ഉന്നതതലയോഗം അവലോകനം ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി വിനോദ്

ഇ തിന്റെ ഫലമായി കച്ച് പ ദേവഭൂമിദ്വാരക പോർബന്ദർ ജാംനഗർ രാജ്കോട്ട് ജുനഗഢ് ദിയു ഗിർസോമ നാഥ് അംറേലി ഭാവ്നഗർ ജില്ലകളിലെ തീരദേശ മേഖലകളിൽ വെള്ളം കയറാനിടയുണ്ട്

ഒരു മനുഷ്യ ജീവൻ പോലും നഷ്ടപ്പെടില്ലെന്നും അടിസ്ഥാന സൌകര്യങ്ങൾക്കുള്ള നാശ നഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുമെന്നും ഉറപ്പുവരുത്താൻ ആവ ശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളുംകൈക്കൊള്ളുന്നതിന് കേ ന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

വെരാവൽ ദിയു പ്രദേശങ്ങളിലും ചുഴലിക്കാറ്റിനെ തുടർന്ന് ശക്തമായ മഴയുണ്ടാകാനിടയുണ്ട് അംറേലി ജുനഗഘ് ഗിർ പോർബന്തർ ജില്ലകളില്ലും ചുഴലിക്കാറ്റ് നാശം വിതച്ചേക്കാം സ്ഥിതിഗതി നേരിട്ടുന്നത്തിനായി മുഖ്യമന്ത്രി വിജയ് രൂപാണി മുതിർന്ന മന്ത്രിമാരുടെ ്യോഗം വിളിച്ചു

പശ്ചിമ റെയിൽവേയുടെ ഭാവ്നഗർ രാജ്കോട്ട് അഹമ്മദാബാദ് ഡിവിഷനുകൾ ട്രെയിൻ നീക്കം തൽക്കാലികമായി നിർത്തി വയ്ക്കും

ഗാന്ധിനഗറിലെ കോബ ഗ്രാമത്തിൽ പാർട്ടി ഓഫീസിനോടനുബന്ധിച്ച് കൺട്രോൾറൂം തുറന്നതായും അദ്ദേഹം പറഞ്ഞു ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ ജിത്തുഭായ് വഘാനി രാജ്കോട്ടിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസ്ാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്തെ പിവിധ സംസ്ഥാനങ്ങളിലെ ബന്ധപ്പെട്ട വകുപ്പുമന്ത്രിമാർ പട്ടികവർഗ്ഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ഡിബിറ്റി സ്കോളർഷിപ്പ് എൻ

ഒ ഗ്രാന്റ്സ് പോർട്ടലുകൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു

ബംഗുളൂരുവിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്

ആർ ഒ ചെയർമാൻ പറഞ്ഞു

എന്നാൽ വിമാനം തകർന്ന കൃത്യസ്ഥലത്തെത്താനും യാത്രക്കാർക്കായി തെരച്ചിൽ ആരംഭിക്കാനും ഇനിയും സമയമെടുക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ പാർട്ടിയുടെ ഉപനേതാവാകും കേന്ദ്രമന്ത്രിമാരായ തവർചന്ദ് ഗെഹ്ലോട്ട് രാജ്യസഭയിൽ ബിജെപി കക്ഷിനേതാവായും പിയൂഷ്ഗോയൽ ഉപനേതാവായും തെരഞ്ഞെടുക്കപ്പെട്ടു ആരോഗ്യകാരണങ്ങളാൽ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിന്ന ബിജെപി നേതാവ് അരുൺ ജെയ്റ്റ്ലിക്ക് പകരമാണ് ശ്രീ ഗെഹ്ലോട്ടിനെ തെരഞ്ഞെടുത്തത്

പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പ്പ തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസൂക്ട്ടിൽ ബ്രിട്ടണിൽ നിന്ന് ഇന്ത്യയിലേക്ക് നീരവ് മോദിയെ ക്ലിക്മാറുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് കോടതി ജാമ്യം നിഷേധിച്ചത് നീരവ് മോദി കീഴടങ്ങീളല്ല്ലെന്ന് വിശ്വസിക്കാൻ തക്കതായ കാരണങ്ങളുണ്ടെന്ന് യൂക്കെ റോയൽ കോർട്സ് ഓഫ് ജസ്റ്റിസ് ജഡ്ജ് ഇൻഗ്രിഡ് സിംലർ പറഞ്ഞു

സുബ്രഹ്മണ്യന്റെ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നല്കുമെന്ന് ന്യൂഡൽഹിയിൽ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു

സുബ്രഹ്മണ്യന് പരിചയമുള്ള രാജ്യത്തിന്റെ സ്ഥിതി വിവരക്കണക്ക് സംവിധാനത്തിന്റെ ഗുണനിലവാരവും സ്വതന്ത്ര സ്വഭാവവും സംരക്ഷിക്കപ്പെടേണ്ടതിട്ട്യതിനാൽ ഇതിനെ വിവാദമാക്കാനുള്ള പ്രസ്താവനയിൽ പറയുന്നു

സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടികളുൾപ്പെടെയുള്ളവരുടെ തൊഴിൽ നൈപുണി വികസനത്തിനായും ഇത് ഉപയോഗപ്പെടുത്തും ന്യൂഡൽഹിയിൽ ചേർന്ന കേന്ദ്ര വഖഫ് കൌൺസിൽ യോഗത്തിൽ ന്യൂനപക്ഷ കാര്യമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി അറിയിച്ചതാണ് ഈ വിവരം

ഇപ്പോൾ പശ്ചിമബംഗാൾ സിഐഡി അഡീഷണൽ ഡയറക്ടർ ജനറലാണ് ശ്രീ

സിബിഐ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വിഷയം ഉന്നയിച്ചതിനെത്തുടർന്നാണ് ജ്ലസ്റ്റിസ് ആശ അറോറ രാജീവ്കുമാറിന്റെ ഹർജിയിൽ വാദ്യം ക്ക്റ്ർക്കുന്നതിനുള്ള സമയം നിശ്ചയിച്ചത്

ടോസ് നേടിയ പാകിസ്ഥാൻ ഓസ്ട്രേലിയയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു

പാകിസ്ഥാനു വേണ്ടി മുഹമ്മദ് അമീർ അഞ്ചും ഷഹീൻ അഫ്രീദി രണ്ടും വിക്കറ്റുകൾ നേടി

ഈ ലോകകപ്പിലെ തുടർച്ചയായ മൂന്നാം ജയം തേടി ഇന്ത്യ നാളെ ന്യൂസിലന്റിനെ നേരിടും വൈകിട്ട് മൂന്നിന് നോട്ടിംഗ് ഹാമിലാണ് മത്സരം പരിക്കേറ്റ ശിഖർ ധവാന് പകരം ഋഷഭ് പന്ത് ഇന്ത്യൻ ടീമിൽ എത്തിയേക്കും

ഇക്കാര്യത്തിൽ സ്ത്രീ രോഗ വിദഗ്ധരും ആരോഗ്യപ്രവർത്തകരും ജാഗരൂകരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു